കൊച്ചി മരടിലെ ഫ്ളാറ്റുകൾ പ്പിളിക്കുന്നതിനുള്ള ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി

ഇന്റർനെറ്റ് മൌലികാവക്ിശ്രമാണെന്നും ജമ്മുകൾമീരിലെ നിയന്ത്രണങ്ങൾ ഒരാഴ്ചയ്ക്കകം പുനഃപരിശോധിക്കണ്ട്മെന്നും സുപ്രീംകോടതി

അസെന്റ് കേരള ആഗോള നിക്ഷേപക സംഗമം കൊച്ചിയിൽ സമാപിച്ചു ഒരുലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ

മൊബൈൽ ഫോൺ ടെലിവിഷൻ ഇന്റർനെറ്റ് വാഹനങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച വിവരങ്ങളും ശേഖരിക്കും

ജമ്മുകശ്മീരിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒരാഴ്ചക്കകം പുനഃപ്രിശോധിക്കാനും ജമ്മുകൾമീർ ഭരണകൂടത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനും കോടതി ഉത്തരവിട്ടു

ജസ്റ്റിസുമാരായ എൻ വി രമണ ആർ സുഭാഷ് റെഡ്ഡി ബി ആർ ഗവായ് എന്നിവരടങ്ങുന്ന ബഞ്ചാണ് കോൺഗ്രസ്സ് നേതാവ് ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജിയിൽ വാദം കേട്ടത് ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും കോടതിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണെന്നും ജസ്റ്റിസ് രമണ പറഞ്ഞു ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കാനായി നിരോധനാജ്ഞ ഏർപ്പെടുത്താൻ പാടില്ലെന്നും ബഞ്ച് നിരീക്ഷിച്ചു

സംഗമത്തിൽ ഒരുലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്ത് നിക്ഷേപകർക്ക് പ്രയാസമില്ലാതെ നിക്ഷേപം നടത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കും കേരളത്തെ മികച്ച നിക്ഷേപ സംസ്ഥാനമായി മാറ്റാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത നാടിന് ഉതകുന്ന ് പ്രോത്സാഹിപ്പിക്കാൻ വ്യവസായങ്ങൾ നമുക്ക് കഴിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

കൊച്ചി ആഗോള നിക്ഷേപക സംഗമത്തിൽ ടൂറിസം വ്യവസായ രംഗത്തെ പദ്ധതികളെകുറിച്ചുള്ള ചർച്ചയിൽ ആമുഖ പ്രഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി

് കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ അഭിവൃദ്ധിക്കുതകുന്ന ഏതു തരം വൃവസായങ്ങളേയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഗവൺമെന്റ് നയമെന്നും അദ്ദേഹം പറഞ്ഞു ഈ മേഖലയിൽ പൊതു സ്വകാരൃ പങ്കാളിത്ത പദ്ധതികൾക്ക് ഗവൺമെന്റ് പ്രാമുഖ്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ക്യാപ്പികോ തീരദേശ പരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ച ആലപ്പുഴയിലെ ക്യാപ്പികോ റിസോർട്ട് പൊളിക്കണമെന്ന കേരള ഹൈക്കോടതി ് ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചു ഹൈക്കോടതി ഉത്തരവിനെതിരെ റിസോർട്ട് അധികൃതർ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി

റിയൽ എസ്റ്റേറ്റ് നിലവിൽ പണി നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കും റിയൽ എസ്റ്റേറ്റ് നിയന്ത്രണ അതോറിറ്റിയുടെ നിയമ വൃവസ്ഥകൾ ബാധകമാക്കാൻ തീരുമാനം

ഇതുപ്രകാരം രജിസ്റ്റർ ചെയ്ത വിൽപന കരാർ ഇല്ലാതെ ഉപഭോക്താവിൽ നിന്ന് പത്തു ശതമാനത്തിൽ കൂടുതൽ തുക മുൻകൂറായോ ആപ്പിക്കേഷൻ ഫ്ടീസ്ട്യോ വാങ്ങാൻ പാടില്ല നിയമാനുസൃതമായ് ഫോമിൽ മ്യൂത്മേ കരാർ ഉണ്ടാക്കാൻ പാടുള്ളു ഷെഡ്യൂൾഡ് ബ്ലാങ്കിൽ ഓരോ പദ്ധതികൾക്കും പ്രത്യേകം അക്കൌണ്ട് തുട്ടങ്ങുകയും മുൻകൂറായി വാങ്ങുന്ന തുകയുടെ നിക്ഷേപിക്കുകയും വേണ്ടം

സിനിമയ്ക്കുവേണ്ടി മുടക്കിയ തുകയും പലിശയും ഉൾപ്പെടെയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് വീഡിയോ കോൺഫറൻസിങ് സംസ്ഥാനത്തെ മുഴുവൻ കോടതികളെയും ജയിലുകളെയും ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന വീഡിയോ കോൺഫറൻസിങ് സംവിധാനത്തിന് തുടക്കമായി

ഹൈക്കോടതിയിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് എസ്

ശ്രുതി മധുരമായ ശബ്ദവും ഭാവതരളിതമായ ആലാപനവും യേശുദാസിനെ എല്ലാ പ്രായത്തിലുമുള്ള ജനങ്ങൾക്കും പ്രിയങ്കരനാക്കിയതായി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി വി മുര്ളീധരൻ നാളെയും മറ്റന്നാളും കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ വിവിധ പരിപാടികളിൽ പങ്ക്ടൂക്കും നാളെ വൈകിട്ട് കോഴിക്കോട് ബീച്ചിലെ കൌമുദി നൈറ്റിലും മന്ത്രി സംബന്ധിക്കും

ഭൂമി കൈവശമുള്ളവർക്കെല്ലാം നിയമാനുസൃതമായി അവകാശം ഉറപ്പാക്കാനുള്ള നടപടികൾ ഉൌർജിതമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു

ഒന്നര വർഷത്തോളം വിളവ് നൽകേണ്ട ശരങ്ങൾ മുറിക്കുന്നതു മൂലം വരും നാളുകളിലെ വിളവെടുപ്പും ഇല്ലാതായിത്തീരും കർഷകരുടെ പരാതിയെത്തുടർന്ന് ഉടുമ്പൻചോല പൊലീസ് അന്വേഷണം ആരംഭിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

ഇരുവരുടേയും ചിത്രങ്ങൾ പകർത്തിയശേഷം അൻപതിനായിരം രൂപ ആവശ്യപ്പെടുകയായിരുന്നു

നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് കടുവയ്ക്കായി പച്ചാടി വനമേഖലയിൽ കഴിഞ്ഞദിവസം കൂട് സ്ഥാപിച്ചത്

പച്ചാടി വനമേഖലയിൽ പെപ്പർ ഡ്രൈയാർഡിന് സമീപത്താണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത് കൂടാതെ ് ആറോളം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്

നിലവിൽ ഈട് വയ്ക്കാൻ നിവർത്തിയില്ലാതെ സംരംഭങ്ങൾ തുടങ്ങാൻ ബുദ്ധിമുട്ടുന്ന തിരികെയെ ത്തിയ പ്രവാസി കേരളീയർക്ക് ഇത് വലിയൊരാശ്വാസം ആകുമെന്നാണ് കണക്കാക്കുന്നത്

കാപ്രിപോക്സ് ഇനത്തിൽപ്പെട്ട പോക്സ് വൈറസാണ് രോഗകാരണം